കോട്ടയം ജില്ലയിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നെങ്കിലും പ്രളയദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ

കവളപ്പാറയിലെ തിരച്ചിൽ തുടരുന്ന കാര്യം തീരുമാനിക്കാൻ ്സ്ർവ്വക്ഷിയോഗം ചേരുന്നു

തിലോത്തമൻ

സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോഡിൽ

പാലാസീറ്റ് കേരള കോൺഗ്രസ് മാണിവിഭാഗം തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

എൽഡിഎഫ് സംസ്ഥാന കമ്മിറ്റി യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും എൻഡിഎയിലും സ്ഥാനാർത്ഥി നിർണ ചർച്ച ആരംഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

പോത്തുകല്ല് പഞ്ചായത്ത് ഓഫിസിൽ ചേരുന്ന യോഗത്തിലേക്ക് കാണാതായുവരുടെ ബന്ധുക്കളെയും വിളിച്ചിട്ടുണ്ട്

മേഖലയിൽ നിന്നും ഇനിയും ആളുകളെ കണ്ടെത്തുമെന്ന പ്രതീക്ഷ ഇല്ലെന്ന് ഫയർഫോഴ്സ് മേധാവികൾ യോഗത്തിൽ അറിയിച്ചു

എല്ലാ അംഗങ്ങളുടെയും ആധാർ റേഷൻ കാർഡുമായി ബന്ധിപ്പിക്കണം ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി ആധാർ കാർഡും റേഷൻ കാർഡുമായി റേഷൻ കടയിൽ എത്തിയാൽ ഇ പോസ് മിഷ്യൻ വഴി ആധാർ ബന്ധിപ്പിക്കാനാകും താലൂക്ക് സപ്പൈ ഓഫീസ് സിറ്റി റേഷണിംഗ് ഓഫീസ് അക്ഷയകേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും സൌകര്യം ലഭൃമാണ് സംസ്ഥാനത്ത് ഏത് റേഷൻ കടയിൽ നിന്നും റേഷൻ വാങ്ങാൻ കഴിയുന്ന പോർട്ടബിലിറ്റി സംവിധാനം കുടൂതൽ സുഗമമാക്കാൻ ഇത് ഉപകാരപ്പെടുമെന്ന് ് മന്ത്രി പി തിലോത്തമൻ ആകാശവാണിയോട് പറഞ്ഞു

റോഡിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് കേന്ദ്രഗവൺമെന്റ് മോട്ടോർ വാഹന നിയമം ഭേദഗതി ചെയ്തത് ഇതോടെ റോഡ് നിയമലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴയിൽ ഗണ്യമായ വർദ്ധനവുണ്ടാകും

കൺസ്യൂമർ ഫെഡിന്റെ ഓണം സഹകരണ വിപണികൾ അടുത്തമാസം ഒന്നിന് ആരംഭിക്കും

കൃഷിവ്കൂപ്പിന്റെയും ഹോർട്ടികോർപ്സിന്റെയും ആഭിമുഖ്യത്തിൽ രണ്ടായിർം ഔണച്ചന്തകൾ ഒരുക്കും

ആഭ്യന്തരവിപണിയിൽ ആവശ്യക്കാരേറിയതിനു പിന്നാലെ ആഗോളവിപണിയിലും സ്വർണവില ഉയർന്നു നിൽക്കുകയാണ്

തമിഴ്നാട്ടിൽ നിന്നും കോട്ടയത്തേക്ക് ചരക്കു കയറ്റിവന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് മൃതദ്ദേഹങ്ങൾ മുണ്ടക്കയം ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്

പാലക്കാട് മണ്ണാർക്കാട് ആനല്ലൂർ സ്വദേശി മുഹ്റമ്മദ് സനൂസ് ആണ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാന്റ് ചെയ്തു

ഒരാഴ്ചയിലധികമായി ആന കൃഷി നശിപ്പിച്ചിട്ടും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പീരുമേട് പരുന്തുംപാറയ്ക്ക് സമീപം കല്ലാറിലാണ് ഒരാഴ്ച്ചയായി ആനശല്യം രൂക്ഷമായിരിക്കുന്നത്

ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സേഫ് സൌണ്ടും സംയുക്തമായാണ് ഗ്ലോബൽ പാർലമെന്റ് സംഘടിപ്പിച്ചത്

നാളെയും ഇവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ട്രയാത്ത് ലോൺ തിരുവന്തപുരത്ത് നടക്കുന്ന ദേശീയ ട്രയാത്ത് ലോൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ സർവ്വീസ് സ്പോർട്സ് കൺട്രോൾ ബോർഡിലെ എം എസ് ആദർശും സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള പ്രഗ്യാ മോഹനും സ്വർണ്ണം നേടി